പദ്ധതി ദാരിദ്ര നിർമ്മാർജ്ജന ദൌതൃങ്ങൾക്ക് അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇന്ന് ദേശീയ കായികദിനം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കായിക പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും

ബാങ്കിങ് സേവനം സാർവത്രികമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ആറുവർഷം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കമിട്ടു

പ്രതിദിനം പത്തുലക്ഷം സാമ്പിൾ പരിശോധിക്കാനുള്ള സൌകര്യം രാജ്യത്തുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ ഒരു കോടിയിലേറെ ടെസ്റ്റുകൾ നടത്തി ആകെ പരിശോധിച്ചത് നാല് കോടിയിലേറെ സാമ്പിളുകളാണ്

കൂടുതൽ വിവരങ്ങളുമായി പൂശ്രീലത

സമ്മേളനത്തിനാവശ്യമായ മറ്റ് സമഗ്രമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു

മാർക്കു പുറമെ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥർ മാധ്യമ പ്രതിനിധികൾ ലോക്സഭ രാജ്യസഭ സെക്രട്ടറിയേറ്റുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ പാർലമെന്റ് പരിസരത്ത് പ്രവേശനാനുമതി ലഭിക്കുന്നവരും മുൻകൂറായി കോവിഡ് പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ ഇടപ്പെടൽ മെച്ചപ്പെടുത്താൻ ഇന്ത്യ പരിശ്രമിക്കുമെന്ന് മിഷൻ അറിയിച്ചു

എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗമായി ജൂണിലാണ് ഇന്ത്യയെ തെരഞ്ഞെടുത്തത് അടുത്ത വർഷം ജനുവരി ഒന്നുമുതൽ രണ്ടുവർഷമാണ് കാലാവധി

ഇതിന്റെ ഭാഗമായി രാജ്യത്തെ വിദഗ്ധരുമായുള്ള ആശയ വിനിമയ പരമ്പരയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു കേന്ദ്ര മന്ത്രി

ഷിൻസോ ആബെയുടെ വിവേക പൂർണ്ണമായ നേതൃതവും വ്യക്തിപരമായ പ്രതിബദ്ധതയും ഇന്ത്യ ജപ്പാൻ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിച്ചുതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിറ്ററിൽ കുറിച്ചു ഷിൻസോ ആബെ വേഗം ആരോഗൃം വീണ്ടെടുക്കട്ടെയെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു

ഓണ്സദ്യയുടേയും മറ്റും പേരിൽ കൂട്ടം കൂടാനോ പൊതുപരിപ്പാടികൾ നടത്താനോ അനുവദിക്കില്ല അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഓണക്കാലത്ത് ഒഴിവാക്കണം കണ്ടെയ്ൻമെൻറ് മേഖ്വല്യിൽ നിയന്ത്രണങ്ങൾ തുടരുമെന്നും സംസ്ഥാന പോലീസ് ്മ്യോ്പി അറിയിച്ചു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് ഗവർണർ ബൻവാരി ലാൽ പുരോഹിത് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഡി

കെ നേതാവ് എം

അതിനിടെ തമിഴ്നാട്ടിൽ കോവിഡ് ബാധിതരുടെ എണ്ണം നാല് ലക്ഷത്തി ഒൻപതിനായിരം കടന്നു

ദേശീയ കായിക അവാർഡ് നേടിയ പ്രതിഭകൾക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് ഓൺലൈൻ ചടങ്ങിൽ പുരസ്കാരങ്ങൾ വെർചലായി സമ്മാനിക്കും അർജ്ജുന ദ്രോണാചാര്യ ധ്യാൻചന്ദ് ടെൻസിംഗ് നോർഗെ രാഷ്ട്രീയഖേൽ പുരസ്കാരങ്ങളാണ് സമ്മാനിക്കുന്നത് കായികമന്ത്രി കിരൺ റിജിജു ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് നരേന്ദ്രധ്രുവ് ബാത്ര തുടങ്ങി വിശിഷ്ടാതിഥികൾ ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നിന്ന് ചടങ്ങിൽ പങ്കെടുക്കും

വാക്സിൻ വിക്സിപ്പിക്കുന്നതിന് ബെക്സിമോ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാമ്പിത്തിക് സഹായം നൽകും

എല്ലാവരെയും ബാധിക്കുന്നപോലെ എല്ലാവരെയും ബാധിക്കുന്ന അർബുദമാണ് തീവ്രവാദ വെല്ലുവിളിയെന്ന് മന്ത്രി പറഞ്ഞു തീവ്രവാദികൾക്കും കൂട്ടാളികൾക്കും ധനമെത്തിക്കുന്നത് തടയാൻ അന്താരാഷ്ട്രതലത്തിൽ ഇന്ത്യ നടത്തിവരുന്ന സമ്മർദ്ദങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഏകീകൃത ഭക്ഷ്യ പൊതുവിതരണ സമ്പ്രദായത്തിന്റെ വിപുലീകരണമാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത്